സരിൻ ദീപക് സിംഗ് എന്നിവർ ഉൾപ്പെടെ ആറ് ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ

രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രി കിഷൻ റെഡ്സിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി ഈ വെല്ലുവിളി നേരിടാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത് റോഡുകളുടെ നിർമ്മാണം മൊബൈൽ ടവർ നിർമ്മാണം ബാങ്കിങ് തപാൽ ആരോർപ്പൂം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ വളർച്ച വഴി ഇടത് തീവ്രഹാദ്യത്ത് കുറയ്ക്കാനായെന്നും മന്ത്രി പറഞ്ഞു

അന്താരാഷ്ട്ര അതിർത്തിയിൽ അതിർത്തി വിന്യസിക്കുന്നതും അതിർത്തികളിൽ വേലികെട്ടുന്നതും വലൈറ്റുകൾ സ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി രാജ്യസഭയിൽ ഇത് സംബന്ധിച്ചു ഉപചോദൃങ്ങൾക്ക് മറുപടി പറയവേ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു

ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളുമായുള്ള അതിർത്തിയിൽ വേലികെട്ടൽ പരിഗണനയിലില്ലെന്നും മന്ത്രി വൃക്തമാക്കി

കുട്ടി കൾക്ക് എതിരായ ലൈംഗീക അതിക്രമങ്ങൾക്ക് കടുത്ത ശിക്ഷ ബില്ല് ലക്ഷ്യമിടുന്നു വിശദാംശങ്ങളുമായി നന്ദകുമാർ

കുട്ടികളുടെ ചിത്രങ്ങൾ ലൈംഗീക ലക്ഷ്യത്തോടെ ഉപയോഗിച്ചാൽ അഞ്ചുവർഷം വരെ തടവുശിക്ഷയും പിഴയും നൽകുന്നത് ബിൽ ലക്ഷ്യമിടുന്നു

തനിക്കെതിരെയുള്ള കുറ്റപത്രം റെട്ടാക്കണമെന്നാവശ്യപ്പെട്ട് നവ്ലഖ കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ജസ്റ്റിസുമാരായ രഞ്ജിത്ത്മോറും ഭാരതി ദാർഖ്യും അടങ്ങുന്ന ഡിവിഷൻ ബഞ്ച് മറ്റൊരു ഉത്തരവ് വരുന്നതുപരെ ഗൌതം നവ്ലഖയുടെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ഉത്തരപ്പിട്ടിട്ടുണ്ട്

തമിഴ്നാട് സെക്രട്ടറേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനി സ്വാമിയാണ് കാർ ഫ്ളാഗ് ഓഫ് ചെയ്തു

സമസ്ത മേഖലകളിലും ഇന്ത്യയും യു കെ യും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ സാധിക്ക ട്ടെയെന്ന് പ്രധാനമന്ത്രി ടിറ്റവിൽ പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ രാജിവച്ചതിന്റെ ്തുടർന്ന് ഇന്നലെയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ബോറിസ് ് ജോൺസൺ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്

മുൻ ആഭ്യന്തര സെക്രട്ടറി സാജിദ് ജാവിദിനെ ധനകാര്യ സെക്രട്ടറിയാക്കി

ബ്രക്സിറ്റ്കരാറിനെതിരെ ഉറച്ച നിലപാടെടുത്ത ഡൊമിനിക് റാബിനെ വിദേശകാര്യ സെക്രട്ടറിയായും നിയമിച്ചു

എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് എന്ന സ്ഥാപനം സന്ദർശിക്കവേയാണ് ഇമ്രാൻഖാന്റെ പരാമർശം മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇമ്രാൻഖാൻ അമേരി ക്കയിൽ എത്തിയത്

പ്രണോയിയും പി

ടോക്കിയോയിൽ ഇന്ന് ജപ്പാന്റെ അയ ഒഹോരിയുമായാണ് സിന്ധുവിന്റെ രണ്ടാം റൌണ്ട് മത്സരം പുരുഷ സിംഗിൾസിൽ എച്ച്

ഇന്ത്യൻ താരമായ സായ് പ്രണീത് ഇന്ന് രണ്ടാം റൌണ്ടിൽ മത്സരത്തിനിറങ്ങുന്നുണ്ട്

ഇന്നലെ ഇംഗ്ലീഷ് ജോഡികളായ മാർക്കസ് ഇല്ലീസ് ക്രിസ് ലാൻഗ്രിഡ്ജ് സഖ്യത്തെ പരാജയപ്പെടു ത്തിയാണ് ഇന്ത്യൻ താരങ്ങൾ രണ്ടാം റൌണ്ടിൽ എത്തിയത്

ഡി

യുടെ സഹായത്തോടെ ത്രിപുര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോർപ്പറേഷനാണ് തുക അനുവദിച്ചിരിക്കുന്നത്